തലസ്ഥാനത്ത് സജീവം ടൌട്ടെ ചുഴലിക്കാറ്റിൽ സംസ്ഥാനത്തു് കനത്ത നാശനഷ്ടം

തിരുവനന്തപുരം എറണ്ടാക്ടുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ന് ഇന്ന് അർദ്ധരാത്രി മുത്ത്ൽ ടിപിൾ ലോക്ഡൌൺ നടപടികൾക്ക് തുടക്ക്മായി

കേരള കോൺഗ്രസ് എം എൻ സി പി ജനതാദൾ എസ് എന്നീ പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനം വീതം ലഭിച്ചേയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്

മീൻ പിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥ അറബിക്കടലിലെ ന്യൂനമർദ്ദത്തെ ൂതുട്ർന്ന് രൂപം കൊണ്ട ടൌട്ടേ ചുഴലിക്കാറ്റ് നിലവിൽ വടക്ക്ക്ോട്ടുള്ള സഞ്ചാര പാതയിലെന്ന് കാലാവസ്ഥാ അറിയിപ്പ്

കേര്ളം കർണ്ണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയും ശക്തമായ തിരമാലയ്ക്കും സാധ്യത കൊല്ലം ആലപ്പുഴ കൊച്ചി പൊന്നാനി കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നിവിടങ്ങളിൽ ശക്തമായ തിരയേറ്റവും അനുഭവപ്പെടും

എങ്കിലും ക്കെടുതിയുടെ ദുരിതം അവസാനിച്ചിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

കിഴക്കൻ മഴ വെള്ളത്തിന്റ വരവ് തുടങ്ങിയതോടെ പമ്പ അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ഒഴുക്ക് ശക്തമായി പാടശേഖരങ്ങൾ കായൽ പോലെ കിടക്കുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും വെള്ളം കയറി

നാഗമ്പടം ഭാഗത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് ദ സെന്റി

നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു

ബാങ്കുകൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രം പാൽ പത്രം മത്സ്യം എന്നിവയുടെ വിതരണം രാവിലെ എട്ട് മണിവരെ അനുവദിക്കും ഡ്രൈ ഡേ ഡ്രൈ ഡേയുടെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി മന്ത്രി കെ

മഴയ്ക്ക് മുമ്പായി ശുചീകരണം കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു

തദ്ദേശസ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പ് ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പ്രതിദിനം പ്രതിരോധം എന്ന മുദ്രാവാകൃത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നത്

ഇത്തരത്തിൽ ഒരാളാണ് വയനാട് ജില്ലയ്ക്കില്ലു സുൽത്താൻ ബത്തേരി സ്വദേശി സജി എന്ന ഓട്ടോ ഡ്രൈവർ പ്രസ ആകാശവാണി വയനാട് ജില്ലാ പ്പെതീനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്

വിദേശത്ത് നിന്ന് ലഭിച്ച ഓക്സിജനാണ് വല്ലാർപാടത്തു നിന്നും ഓക്സിജൻ ടാങ്കറിൽ റോഡ് മാർഗ്ഗം എത്തിച്ചത് മത്സ്യത്തൊഴിലാളികൾ ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി ലക്ഷദ്വീപിന് സമീപ്പം അപകടത്തിൽപ്പെട്ട് കാണാതായ മത്സൃത്തൊഴിലാളികളെ കണ്ടെത്തിയതായി റിപ്പോർട്ട് കടമത്ത് ദ്വീപിൽ നിന്നാണ് കോസ്റ്റ് ഗാർഡ് ഇവരെ കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം സൌമൃ സന്തോഷ് ഇസ്രയിലിൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കീരിത്തോട് സ്വദേശിനി സൌമൃസന്തോഷിന്റെ സംസ്കാരം നിതൃസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ നടന്നു നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു